വാർഷികം ഇന്ന് ലോകത്ത് സമാധാനം കാത്തു സൂക്ഷിക്കുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു

ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനുമായി ഏറ്റുമുട്ടും

സഹോദര്യവും സഹവർത്തിത്വും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമായിരിക്കുക്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദേശത്തിൽ പറഞ്ഞു

സമാധാനം പരിരക്ഷിക്കുന്നതിനുവേണ്ടിയായിരുന്നു ഇത്

സേവനങ്ങളെ തീൻമൂർത്തി ഹൈഫ ചൌക്കിലെ യുദ്ധ സ്മാരകത്തിൽ ഇസ്രേയേലി പ്രധാനമന്ത്രി ബഞ്ചമിൻ നെതന്യാഹൂമിന്റെ സന്ദർശന വേളയിൽ അദ്ദേഹത്തോടൊപ്പം സ്മരണാഞ്ജലി അർപ്പിച്ചതും പ്രധാനമന്ത്രി സന്ദേശത്തിൽ അനുസ്മരിച്ചു

ഇന്ന് രാവിലെ കാൻകെർ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ മാവോയിസ്റ്റുകൾ നടത്തിയ ബോംബ് സ്ഫോടനത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു ഇവിടെ പട്രോളിങ് നടത്തുകയായിരുന്ന ബി എസ്

അതേ സമയം ബീജാപ്പൂർ ജില്ലയിൽ പ്രത്യേക ദൌത്യസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ നടന്ന വെടിവെയ്പ്പിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു

സുഖ്മ ജില്ലയിൽ നിന്നും മാവോയിസ്റ്റുകൾ സ്ഥാപിച്ചിരുന്ന ബോംബുകൾ കണ്ടെടുത്ത് നിർവീര്യമാക്കിയിട്ടുണ്ട്

അശ്വാസ്തി പറഞ്ഞു മൊഹ്ല മാൻപൂർ അന്താഗഢ് ഭാനുപ്രതാപ്പൂർ കാങ്കർ കെഷ്ക്കൽ കൊണ്ടഗാവ് നാരായൺപൂർ ദന്തേവാഡ ബിജാപൂർ കൊന്ത മണ്ഡലങ്ങളിൽ നാളെ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് വോട്ടെടുപ്പ് കൈർഗഡ് ഡോംഗഗഡ് രാജ്നന്ദഗാവ് ഡേംഗർഗാവ് ഖുജ്ജ് ബസ്താർ ജഗദൽപൂർ ചിത്രാകോട് എന്നിവിടങ്ങളിൽ എട്ട് മുത്തൂർ അഞ്ച് വരെയാണ് പോളിംഗ് സമയം

ബുധനാഴ്ചയാണ് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന ദിവസം

അടുത്തമാസം ഏഴിനാണ് വോട്ടെടുപ്പ്

കൂടുതൽ വിവരങ്ങളുമായി വിനോദ് കുമാർ

സമൂഹത്തിൽ ശുചിത്വത്തിന് പ്രാധാന്യം നൽകുന്നതിനായാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളതെന്ന് അസ്സം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഹരേന്ദ്രനാഥ് ബോറ ആകാശവാണിയോട് പറഞ്ഞു കൂടാതെ രണ്ടു കുട്ടികളിൽ കൂടുതൽ ഉള്ളവർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല ദേശീയ പൌരത്വ രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് തടസ്സം ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു

നിയമം ലംഘിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്ന് മുനിസിപ്പൽ കമ്മീഷണർ സഞ്ജയ് ദുബേ ആകാശവാണിയോണ് പറഞ്ഞു ഒരുനില കെട്ടിടത്തിനാണ് അനുമതി നൽകിയിരുന്നത് എന്നാൽ മൂന്ന് നില കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത്

ബുദ്ധ തീർത്ഥാടന കേന്ദ്രമായ സാരനാഥിലേക്കുള്ള റിംഗ് റോഡാണ് ഇതിൽ പ്രധാനം

വാരാണസി മേഖലയിൽ യാത്രാസമയം കുറയ്ക്കുന്നതിനും മലിനീകരണം തടയുന്നതിനും ഈ പദ്ധതികൾക്ക് കഴിയുമെന്നാണ് വിലയിരുത്തുന്നത് ഗംഗാനദിയിലെ ജലഗതാഗത ടെർമിനലും പ്രധാനമന്ത്രി രാജ്യത്തിനായി തുറന്നുകൊടുക്കും പദ്ധതികൾ വാരാണസിയ്ക്കും ഉത്തർപ്രദേശിനും പുതിയ മുഖം നൽകുമെന്ന് പ്രധാന മന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

വ്യക്തിയ്ക്കും വിദ്യാഭ്യാസം ഓരോ നേടാനുള്ള അവകാശമുണ്ടെന്നും തന്റെ കഴിവുകളെ വികസിപ്പിച്ച് ഒരു പൂർണ്ണ ജീവിതം നയിക്കാൻ വിദ്യാഭ്യാസം മനുഷ്യനെ പ്രാപ്തനാക്കുന്നു എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം

വനിതാ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ടെക്നോളജി യു

ബി എസ് ഇ

ആകാശ നിരീക്ഷണവും ഏർപ്പെടുത്തും തുലാമാസ പൂജ ചിത്തിര ആട്ടവിശേഷം എന്നിവയ്ക്കായി നട തുറന്നപ്പോഴുണ്ടായ അനിഷ്ട സംഭവങ്ങൾ കണക്കിലെടുത്താണ് സുരക്ഷ കർശനമാക്കുന്നത് അതേസമയം ശബരിമലയിൽ ദേവസ്വം ഭൂമി അളന്നു തിരിക്കുന്ന രണ്ടാം ഘട്ട സർവ്വേ ആരംഭിച്ചു

വനം വകുപ്പും ദേവസ്വം ബോർഡും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ദേവസ്വം ഭൂമി അളന്ന് തിരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു

പാർലമെന്റ് പിരിച്ചുവിട്ട് പുതിയ തിരഞ്ഞെടുപ്പ് നേരിടാനുള്ള പ്രസിഡന്റിന്റെ തീരുമാനത്തെ യു എൻ ചീഫ് കൃത്യമായി വിശകലനം ചെയ്തുവെന്ന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു ജനാധിപത്യ പ്രക്രീയയെയും നിയമങ്ങളെയും ബഹുമാനിക്കേണ്ട ആവശ്യകതയും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു ശ്രീലങ്കൻ ജനതയുടെ മനുഷ്യാവകാശവും സമാധാനവും ഗവൺമെന്റ് ഉറപ്പാക്കണമെന്നും യു

ചീഫ് ആവശ്യപ്പെട്ടു

ഇറക്കുമതി ചെയ്യുന്ന മത്സ്യത്തിൽ തുടർച്ചയായി ഫോർമാലിന്റെ സാന്നിദ്ധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് നിരോധനം ഏർപ്പെടുത്തിയതെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി വിശ്വജിത് റാണെ പനാജിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

എൽ ഫുട്ട്ബോൾ മത്സരത്തിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് ഗോവ എഫ്

ഇന്നത്തെ ജയം കേരള ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമാണ്